കേരളത്തിൽ പത്തനംതിട്ട ഒഴികെ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളായി സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഹൈക്കോടതി സ്വമേധയാ നടപടിയെടുത്തു സഭാ തർക്കം നിലനിൽക്കുന്ന ആലപ്പുഴ കറ്റാനം കട്ടച്ചിറ പള്ളി യുടെ നിയന്ത്രണം ജില്ലാ കലക്ടർ ഏറ്റെടുത്തു ഇന്ന് ലോക ജലദിനം സംസ്ഥാനതല പരിപാടി തിരുവനന്തപു രത്ത് ഗവർണർ പി സദാശിവം ഉദ്ഘാടനം ചെയ്യും

വനിതാ സാഫ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് നേപ്പാ ളിനെ നേരിടും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുപി യിലെ വാരണാസിയിലും ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഗുജറാ ത്തിലെ ഗാന്ധിനഗറിലും മത്സരിക്കും മുതിർന്ന നേതാവ് എൽ

അദ്വാനി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് ഗാന്ധി നഗർ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ അദാനിയുടെ പേരില്ല

രണ്ടാംഘട്ട പട്ടിക ഇന്നുണ്ടാ യേക്കുമെന്നാണ് സൂചന കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിങ്ങ് ലഖ്നോയിലും നിതിൻ ഗഡ്ഗരി നാഗ്പൂരിലും മത്സരിക്കും അമേ ഠിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനിയാണ് ഇത്തവണയും ബിജെപി സ്ഥാനാർത്ഥി

്മുൻ സിനിമാ താരം ഹേമമാലിനി പാർട്ടി ടിക്കറ്റിൽ മഥുരയിൽ ജനവിധി നേടും

മിസോറാം മുൻ ഗവർണ്ണർ കുമ്മനം രാജശേഖരൻ തിരുവനന്തപു രത്തും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്തും മത്സരിക്കും ആറ്റിങ്ങലിൽ ശോഭാസുരേന്ദ്രൻ കൊല്ലത്ത് സാബു വർഗീസ് ആലപ്പുഴയിൽ ഡോ

രാധാകൃഷ്ണൻ ചാലക്കുടി എ

രാധാകൃഷ്ണൻ പാലക്കാട് സി കൃഷ്ണകുമാർ പൊന്നാനി വി

രമ മലപ്പുറത്ത് വി ഉണ്ണികൃഷ്ണൻ കോഴിക്കോട് കെ

പ്രകാശ് ബാബു വടകര വി

സജീവൻ കണ്ണൂരിൽ സി

പത്മനാഭൻ കാസർകോട് രവീശ തന്ത്രി കുണ്ടാർ എന്നിവരാണ് ബിജെപി സ്ഥാനാർത്ഥികൾ കോട്ടയത്ത് എൻഡിഎ ഘടകകക്ഷിയായ കേരളാ കോൺഗ്രസ് അധ്യക്ഷൻ പി

തോമസാണ് സ്ഥാനാർത്ഥി പത്തനംതിട്ട മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാ പിച്ചിട്ടില്ല എൻഡിഎ ഘടകക്ഷികളായ ബിഡിജെഎസ് അഞ്ചിടത്തും കേരളാ കോൺഗ്രസ് ഒന്നും മണ്ഡലത്തിലും മത്സരിക്കും എന്നാൽ ബിഡിജെഎസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യ ത്തിൽ അന്തിമ പ്രഖ്യാപനം നടത്തിയിട്ടില്ല ബിജെപി സ്ഥാനാർത്ഥി കളുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഇന്ന് ആരംഭിക്കുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ അറിയിച്ചു യുഡിഎഫ് എൽഡിഎഫ് ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാ പിച്ചതോടെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആവേശത്തിലേക്ക്

യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികളുടെ പര്യടനം മണ്ഡലം കൺവെൻഷനുകളും ആരംഭിച്ചു കഴിഞ്ഞു ബിജെപി സ്ഥാനാർത്ഥി കൾ ഇന്ന് മണ്ഡലം പര്യടനം ആരംഭിക്കും അവരുടെ തെരഞ്ഞെ ടുപ്പ് കൺവെൻഷനുകൾക്കും തുടക്കമാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ്എൻഡിപി യോഗത്തിന്റെ നിലപാട് യോഗം കൌൺസിൽ ചേർന്ന് തീരുമാനിക്കുമെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലയിൽ പറഞ്ഞു ശരിദൂ രമാണ് യോഗത്തിന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വെള്ളാപ്പള്ളിയുടെ ചേർത്ത ലയിലെ വീട്ടിലെത്തി ചർച്ച നടത്തുന്നുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം പ്രചരിപ്പിച്ചാൽ കർശന നടപ ടി എടുക്കുമെന്ന് ഭരണപരിഷ്ക്കാര വകുപ്പ് മുന്നറിയിപ്പ് നൽകി തെര ഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇത്തരം കാര്യങ്ങ ളിൽ നിന്ന് ഉദ്യോഗസ്ഥർ വിട്ട് നിൽക്കേണ്ടതാണെന്ന് കമ്മീഷൻ സർക്കുലറിൽ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മൂന്നാർ മേഖലയിലെ മൂന്ന് സ്കൂളുകളിലെ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ വോട്ടവകാശം വിനിയോഗിക്കണ മെന്നാവശ്യപ്പെട്ട് കത്തയക്കും ആയിരത്തോളം സ്കൂൾ കുട്ടികൾ പരിപാടിയിൽ പങ്കാളികളാകും തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി സ്വീപിന്റെ ഭാഗമായി മറയൂർ ആദിവാസി മേഖലയിൽ തെരുവ് നാടകവും സംഘടിപ്പിച്ചു ജില്ലയിൽ വോട്ടുവണ്ടി പര്യടനം തുടരുകയാണ് സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഹൈക്കോടതി സ്വമേധയാ നടപടി ആരംഭിച്ചു മയക്കുമരുന്ന് ഉപ യോഗം യുവതലമുറയെ നശിപ്പിക്കുന്നുവെന്ന കത്ത് കോടതി ഹർജി യായി പരിഗണിച്ചു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും പൊലീസ് എക്സൈസ് മേധാവികളും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഉൾപ്പെടുന്ന സംവിധാനങ്ങളെ കേസിൽ കക്ഷികളായി ചേർക്കാൻ ജസ്റ്റിസ് പി

ലഹരിമരുന്ന് ഉപയോഗം കണ്ടെത്താനും പരിശോധന നടത്താനും ആവശ്യമായ ചെലവു കുറഞ്ഞ മാർഗങ്ങൾ ലഭ്യമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു പൊലീസിനും എക്സൈസിനും ഇത്തരം സംവിധാനങ്ങൾ നൽകണമെന്നും കോടതി നിർദേശിച്ചു ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ആലപ്പുഴ കറ്റാനം കട്ടച്ചിറപ്പള്ളിയുടെ നിയന്ത്രണം ജില്ലാ കലക്ടർ ഏറ്റെടുത്തു

സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് നിരോധനാ ജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പരീക്ഷാവേളയിൽ കൂട്ടികൾ ആവശ്യപ്പെടുന്ന പക്ഷം സ്കൂൾ ശൌചാലയം ഉപയോഗിക്കാൻ ക്രമീകരണങ്ങളൊരു ക്കാൻ ചീഫ് സുപ്രണ്ടിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദേശം നൽകി വിദ്യാർത്ഥികൾക്ക് മാനസിക സംഘർഷം കൂടാതെ പരീ ക്ഷയെഴുതുന്നതിന് എല്ലാവിധ സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടു ണ്ടെന്നും നിർദേശത്തിൽ പറയുന്നു ഇന്ന് ലോക ജലദിനം

സുരക്ഷിതമായ കുടിവെള്ളം ലഭിക്കാത്ത കോടിക്കണക്കിന് ആളു കൾ ലോകത്തുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഗുരുതരമായ ജലക്ഷാമം നേരിടുകയാണ് ഇന്ത്യ യിൽ പോലും ചിലയിടങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം ഇന്ന് ഒര പൂർവ്വ വസ്തുവാണ് എല്ലാവർക്കും കുടിവെള്ളം എന്ന ലക്ഷ്യത്തി ലേക്ക് ആരേയും പിന്നിൽ ഉപേക്ഷിക്കാതെ എന്ന സന്ദേശത്തോടെ യാണ് ഈ വർഷത്തെ ജലദിനാചരണം ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഗവർണർ പി സദാശിവം നിർവഹിക്കും കനകക്കുന്ന് കൊട്ടാരത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യാന്തര ശിൽപശാല ഉൾപ്പെടെ പരി പാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ജലപരിപാലനം പരിപോഷണം വരൾച്ചാ വെള്ളപ്പൊക്ക നിയന്ത്രണം ജലസംരക്ഷണ മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്ഗധർ സംസാരിക്കും നെതർലന്റ് സിൽ നിന്ന് അഞ്ചംഗ സംഘവും പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് എകെജി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ കണ്ണൂർ കാൽടെക്സിലെ എകെജി പ്രതിമയിൽ മുഖ്യമന്ത്രി പിണറായി വിജ യൻ പൂഷ്പാർച്ചന നടത്തും

നിലവിൽ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർ കിങ്ങ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മി ലാണ് ഉദ്ഘാടന മത്സരം

നേപ്പാളിലെ ബിരത് നഗറിൽ വനിത സാഫ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും തുടർച്ചയായ ആറാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ മത്സരത്തിനിറങ്ങുന്നത് ചെർപ്പുളശേരിയിൽ പാർട്ടി ഏരിയ കമ്മറ്റി ഓഫീസിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായെന്ന പരാതിയിൽ പൊലീസ് കേസെടുത്തു നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ പെൺകുട്ടിക്കെതിരേയും കേസെടുത്തിട്ടുണ്ട് പുത്തനാൽക്കൽ തട്ടാ രുതൊടിയിൽ പി പ്രകാശൻ യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് അതേസമയം ആരോപണ വിധേയനായ യുവാവിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് സിപിഐഎം ചെർപ്പുളശേരി ഏരിയ സെക്രട്ടറി അറി യിച്ചു മലപ്പുറം എആർ നഗറിൽ ഒൻപതുകാരൻ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് കേന്ദ്ര ഗവേഷണ സംഘം കുട്ടി താമ സിച്ചിരുന്ന വീട്ടിലും പരിസരങ്ങളിലും വിശദ പരിശോധന നടത്തി രോഗബാധയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കണ്ടെത്താനും ജനങ്ങ ളിലെ ആശങ്ക പരിഹരിക്കാനുമാണ് കേന്ദ്ര സംഘം ജില്ലയിലെത്തി യത്

ൃ സൌദി അറേബ്യയിൽ മരിച്ച കോന്നി കുമ്മണ്ണൂർ സ്വദേശി റഫീഖ് അബ്ദൂൾ റസാഖിന്റെ ശരീരം നാട്ടിലെത്തിക്കാൻ നടപടി എടുത്ത തായി നോർക്ക റൂട്സ് അധികൃതർ അറിയിച്ചു റസാഖിന്റെ മൃതദേ ഹത്തിന് പകരം ശ്രീലങ്കൻ സ്വദേശിനിയുടെ ശരീരമാണ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചത് ജിദ്ദയിൽ നിന്ന് മൃതദേഹങ്ങൾ വിമാനത്തിൽ കയറ്റുമ്പോഴുണ്ടായ പിഴവ് മൂലമാണ് ഇത് സംഭവിച്ചത് കുട്ടനാട്ടിൽ താറാവുകൾ കൂട്ടമായി ചത്തിനു കാരണം താറാവുവസന്ത രോഗമാണെന്ന് സ്ഥിരീകരിച്ചു രോഗം കണ്ടെത്തിയ മുത്താറിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് താറാവ് വസന്തയ്ക്കെതിരെ വാക്സിൻ നൽകുമെന്ന് അധകൃതർ അറി യിച്ചു ഉത്സവ മീനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ നടയടച്ചു

പാലക്കാട്ട് സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിലെ സ്റ്റേജ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും വൈകീട്ട് മന്ത്രി എ

ദേശീയ ബധിര കായിക മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കേരളാ ടീമിലെ കോഴിക്കോട് ജില്ല താരങ്ങളെ സ്പോർട്സ് കൌൺസിൽ ഓഫ് ദ ഡഫ് നാളെ അനുമോദിക്കും നാളെ വൈകീട്ട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ് കൊച്ചി വിമാനത്താവളത്തിലെ നവീകരിച്ച ഒന്നാം ടെർമിനൽ പ്രവർത്തനം തുടങ്ങി